മൂന്നാമത് ആഗോള പുനരുപയോഗ ഊർജ്ജ നിക്ഷേപക സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും

ഫുട്ബോൾ ഇതിഹാസം ഡിഗോ മാറ്റ്ഡോണ അന്തരിച്ചു

കേന്ദ്രം പുതുക്കിയ കോവിഡ് മാനദണ്ഡങ്ങൾ പുറത്തിറക്കി

പരസ്പര സഹകരണം കൂടുതൽ ശക്തമാക്കാൻ ഇന്ത്യ ബെഹ്റിൻ നാരണ

രണ്ടു ദിവസത്തെ സമ്മേളനത്തിൽ ലോകത്തെ പ്രമുഖ പുനരുപയോഗ ഊർജ്ജ കമ്പനികൾ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കും

ഇന്നലെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഗുജറാത്ത് ഗവർണർ ആചാരി ദേവ്രഥ് മുഖ്യമന്ത്രി വിജയ് രൂപാനി എന്നിവർ സംബന്ധിച്ചു

ഹൃദയാഘാതമാണ് മരണ കാരണം

തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് മാറഡോണയ്ക്ക് ഈയിടെ ശസ്ത്രക്രിയ നടത്തിയിരുന്നു

ലോകമാകെ ആരാധകരെ സൃഷ്ടിച്ചു

ക്ലബ്ബ് ഫുട്ബോളിൽ ബൊക്ക ജൂനിയേഴ്സ് ബാഴ്സലോണ നാപോളി ടീമുകൾക്കായി ബൂട്ടണിഞ്ഞു

ബ്യൂണസ് ഐറിസിലെ സാധാരണ കുടുംബത്തിൽ നിന്നായിരുന്നു മാറഡോണയെന്ന ഇതിഹാസത്തിന്റെ തുടക്കം

ഏറെ വിവാദങ്ങളും പിന്തുടർന്നു

ആരാധകരെ ആശ്വസിപ്പിച്ച് ഓരോ നിമിഷവും മാറഡോണ തിരിച്ചുവന്നു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇന്നലെ രാത്രിയോടെയാണ് ചുഴലിക്കാറ്റ് ആഞ്ഞ് വീശിയത്

ഇന്ന് ഉച്ചയോടെ ചുഴലിക്കാറ്റ് ദുർബലമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണകേന്ദ്രം അറിയിച്ചു ഒന്നരലക്ഷത്തോളം പേരെയാണ് തമിഴ്നാടിന്റെ തീരദേശത്തു നിന്നും ദുരിതാശാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയത് കനത്ത കാറ്റിൽ നൂറുകണക്കിന് മരങ്ങൾ കടപുഴകി രാത്രിയായതിനാൽ നാശനഷ്ടങ്ങൾ വിലയിരുത്തിയിട്ടില്ല

പ്രധാനമന്ത്രി സൽമാൻ ബിൻ ഹമദ് രാൻ ഖലീഫ ഉപപ്രധാനമന്ത്രി ഷേഖ് അലി ബിൻ ഖലീഫ അൽ ഖലീഫ അൽ ഖലീഫ വിദേശകാര്യ മന്ത്രി അബ്ദുൾ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാഹി എന്നിവരുമായി ശ്രീ ജയ്ശങ്കർ കൂടിക്കാഴ്ച നടത്തി മുൻ പ്രധാനമന്ത്രി ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫയുടെ നിര്യാണത്തിൽ ശ്രീ ജയ്ശങ്കർ ദുഖവും അനുശോചനവും അറിയിച്ചു ഇന്ത്യ ബഹ്റിൻ ബന്ധത്തിന്റെ കെട്ടുറപ്പിന് അദ്ദേഹം വഹിച്ച പങ്കു വിദേശകാര്യമന്ത്രി എടുത്തു പറഞ്ഞു കോവിഡ് പകർച്ച വ്യാധി സമയത്ത് ഇന്ത്യൻ സമൂഹത്തിന് നൽകിയ സംരക്ഷണത്തിന് നന്ദിയും അറിയിച്ചു ബഹ്റൈൻ വിദേശകാര്യ മന്ത്രിയുമായി ചർച്ച നടത്തിയ ശ്രീ ജയ്ശങ്കർ പരസ്പര സഹകരണം കൂടുതൽ ശക്തമാക്കാനുള്ള ശ്രമങ്ങൾക്കും മുൻകൈയ്യെടുത്തു

രാജ്യത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച സുരക്ഷ ഉദ്യോഗസ്ഥർക്ക് സ്മരണാഞ്ജലി അർപ്പിക്കുന്നതിനായി സിറ്റി പോലീസ് മുംബൈയിൽ ഇന്ന് അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കും കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ആൾക്കൂട്ടം ഒഴിവാക്കിയാണ് ചടങ്ങുകൾ നടത്തുക ദക്ഷിണ മുംബൈയിൽ പോലീസ് ആസ്ഥാനത്ത് പുതുതായി പണികഴിപ്പിച്ച സ്മൃതി മന്ദിരത്തിലാണ് ചടങ്ങുകൾ ക്രമീകരിച്ചിട്ടുള്ളത്

ഒരു റിപ്പോർട്ട്

കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ച സ്ഥലങ്ങളിൽ എല്ലാ മാനദണ്ഡങ്ങളും കൃത്യമായി പാലിക്കുന്നെന്ന് ജില്ലാതല ഭരണകൂടങ്ങൾ പോലീസ് മുൻസിപ്പൽ അധികാരികൾ എന്നിവർ ഉറപ്പാക്കണമെന്ന് പുതിയ മാർഗ്ഗനിർദ്ദേശം പറയുന്നു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ സ്ഥലങ്ങളിൽ ഏറ്റവും താഴെ തട്ടിലുള്ള പ്രദേശങ്ങൾ വരെ കൃത്യമായി വേർതിരിച്ച് നിരീക്ഷിക്കുന്നുണ്ടെന്ന് സംസ്ഥാനങ്ങളും കേന്ദ്ര ഭരണ പ്രദേശങ്ങളും ഉറപ്പ് വരുത്തണം

ചട്ടപ്രകാരമുള്ള കോവിഡ് പരിശ്രോ ്ട്രിക്കളും കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നടത്തണമെന്ന് പ്രൂതിയ മാർഗനിർദേശത്തിൽ പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണ്ടി

രോഗബാധിതരുടെ എണ്ണത്തിൽ ഇന്ത്യ രണ്ടാം സ്ഥാനത്താണ്

ജി എസ് ടി മൂലമുണ്ടായ വരുമാന കുറവ് നികത്താൻ വായ്പയെടുക്കുന്നതിന് പ്രത്യേക സൌകര്യമൊരുക്കുന്നതിനൊപ്പം ഉത്പാദനത്തിന്റെ ദശാംശം അഞ്ച് ശതമാനം അന്തിമ ഗഡു കടമെടുക്കാൻ ഉപാധികളില്ലാതെ അനുമതി നൽകുന്നതുമാണ് ഒപ്ഷൻ ഒന്ന്